നാളെ വാരാണസി ലോക്സഭാ മണ്ഡലം സന്ദർശിച്ച് വോട്ടർമാർക്ക് നന്ദിയറിയിക്കും കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അദ്ദേഹം പൊതുയോഗത്തിലും പങ്കെടുക്കും

ആർ കോൺഗ്രസ് നേതാവുമായ ജഗൻ മോഹൻ റെഡ്സി ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടി ക്കാഴ്ച നടത്തി വ്യാഴാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചട ങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹം പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു

എഫ് പ്രവർത്തകർക്കും നന്ദി അറിയിക്കാൻ ഉടൻ തന്നെ വയനാട് സന്ദർശിക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അറിയിച്ചു റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിച്ച എല്ലാവരോടും നന്ദി പറയുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ മലയാളത്തിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ അറിയിച്ചു ലലലലല സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ യോഗം ഉച്ചകഴിഞ്ഞ് ന്യൂഡൽഹിയിൽ ആരംഭിക്കും രണ്ട് ദിവസത്തെ യോഗത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് പ്രധാന അജണ്ട കേരളത്തിലെ തോൽവിയും ചർച്ചാവിഷ യമാകും

മുഖ്യമന്ത്രി രണ്ട് തവണ കൂടി സന്ദർശിച്ചിരുന്നെങ്കിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം നഷ്ടപ്പെടില്ലായിരുന്നെന്നും മുരളീധരൻ തൃശൂരിൽ പറഞ്ഞു തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖൃമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം കേരളത്തിലെ അവ സാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹം തീരു മാ നി ച്ചി രി ക്കു ക യാ ണെ ന്നും തന്നെ മുരളീധരൻ അഭിപ്രായപ്പെട്ടു

വിജയരാഘവനെതി രായ മാനഹാനി സംബന്ധിച്ച പരാതിയിൽ സംസ്ഥാന വനി താകമ്മീഷനിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന് ആലത്തൂരിലെ നിയുക്ത എം

വിശദീകരണ ത്തിന് പോലും കമ്മീഷൻ വിളിച്ചിട്ടില്ലെന്നും യു ഡി എഫ് നേതൃത്വത്തിന്റെ നിർദ്ദേശമനു സരിച്ച് പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും രമ്യാഹരിദാസ് സ്വകാര്യ ചാനലി നോട് വൃക്തമാക്കി

വിജയരാഘവന്റെ പരാമർശം വോട്ടർമാരെ സ്വാധീനി ച്ചിരി ക്കാ മെന്ന് മന്തി ബാലൻ എ

എന്നാൽ പരാമർശം പ്രത്യേക ഉദ്ദേശ്യം വെച്ചായി രുന്നില്ലെന്നും വിഷയം മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി

എൽ ജെ ഡി വോട്ടുകൾ യു ഡി എഫിന് പോയി ട്ടില്ലെന്നും സീറ്റ് കിട്ടാത്തിൽ അണികളുടെ വികാരമാണ് വടകരയിൽ പ്രതിഫലിച്ചതെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറ ഞ്ഞു

ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നാല് എം എൽ എ മാരും സഭയിലുണ്ടാകും അവർ രാജിവെക്കും മുമ്പാണ് സഭ ചേരുന്നത്

എം ആരിഫ് കോൺഗ്രസിലെ കെ മുരളീധരൻ അടൂർപ്രകാശ് ഹൈബി ഈഡൻ എന്നിവരാണ് എം പി മാരായി തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ

ജെ ജോസഫിന് നൽകണമെന്നാവശ്യപ്പെട്ട് പാർട്ടി പാർല മെന്ററി പാർട്ടി സെക്രട്ടറി മോൻസ് ജോസഫ് സ്പീക്കർക്ക് കത്ത് നൽകി നിയമസഭാ കക്ഷി നേതാവിന്റെ സീറ്റ് ജോസ ഫിന് നൽകണമെന്നാണ് ആവശ്യം അടുത്തമാസം ഒന്നു മുതൽ പ്രളയ സെസ് പിരിക്കുന്നതിന് വിജ്ഞാപനമായി

ഇതിന് നിയമസഭ അംഗീകാരം നൽകിയിരുന്നു

സ്വർണ്ണം വെള്ളി പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് കാൽ ശത മാനമാണ് സെസ്

സർണ്ണവും വെള്ളിയും ലഭിച്ചതായി രേഖകളുണ്ടെങ്കിലും ഇവ സ്ട്രോങ് റൂമിലേക്ക് ് മാറ്റിയതിന് രേഖകളില്ല ഇതേ തു ടർന്നാണ് ഓഡിറ്റിംഗ് വിഭാഗം പരി ശോ ധന നടത്തുന്നത് സ്ട്രോങ് റൂം തുറന്ന് ക്രമക്കേട് കണ്ടെത്തിയാൽ കുറ്റ ക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് തിരുവിതാം കൂർ ദേവസ്പം ബോർഡ് പ്രസിഡണ്ട് എ പത്മകുമാർ അറിയിച്ചു ആറ് വർഷമായി സ്ട്രോങ് റൂം തുറന്ന് പരിശോ ധിച്ച് ചുമതല കൈമാറിയിട്ടില്ലെന്നും ക്രമക്കേട് നടന്നോ എന്നറിയാൻ സ്ട്രോങ് റൂം പരിശോധിക്കണമെന്നും പത്മ കുമാർ പത്തനംതിട്ടയിൽ പറഞ്ഞു

തീരുമാനം ഇടതുപക്ഷ നിലപാടി നോട് യോജിക്കുന്നതല്ലെന്ന് അദ്ദേഹം കത്തിൽ പറഞ്ഞു മൂന്നാർ ദൌത്യകാലത്തെ കയ്യേറ്റഭൂമി ഗവൺമെന്റ് ഏറ്റെടുത്ത നടപടികൾ ശരിയാണെന്ന് കോടതികൾ അംഗ്ലീകരിച്ചതാണ് കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് തിരിച്ചു പിടിച്ച കയ്യേറ്റങ്ങളും പൊളിച്ചു കളഞ്ഞ നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ കോടതികളിൽ നടക്കുന്ന കേസുകളെ പോലും തീരുമാനം പ്രതികൂലമായി ബാധിക്കാനിടയു ണ്ടെന്നും കത്തിൽ അറിയിച്ചു

ഖുർആൻ അവതരിച്ച അനുഗ്രഹത്തിന്റെ രാത്രിയായ ലൈലത്തുൽ ഖദ്ർ അവസാന പത്തിലെ ഒറ്റയായ രാവുക ളിലെന്നാണ് വിശ്വാസം അവസാന പത്തിൽ പ്രാർത്ഥനയും ദാനധർമ്മവും വർദ്ധിക്കും അവസാനത്തെ പത്ത് ദിനങ്ങൾ നരകമോചനത്തിന്റേതാണെന്നാണ് പ്രവാചകപാഠം ഇതിനായി ഓരോ ദിവസവും പ്രത്യേക പ്രാർത്ഥനകളും കൂടു തൽ പ്രവർത്ത ന ങ്ങ ളു മായി വിശ്ചാ സി കൾ കഴിഞ്ഞുകൂടും നിർബന്ധമായി നടത്തേണ്ട സക്കാത്ത് വിത രണത്തിന് വിശ്വാസികൾ കൂടുതലായി ഈ ദിനങ്ങളാണ് തെരഞ്ഞെടുക്കുക സംസ്ഥാനത്ത് സപ്പൈകോ റംസാൻ മെട്രോ ഫെയറു കൾ നാളെ ആരംഭിക്കും തിരഞ്ഞെടുക്കപ്പെട്ട സപ്പൈകോ സൂപ്പർ മാർക്കറ്റുകൾ പീപ്പിൾസ് ബസാറുകൾ ഹൈപ്പർ മാർക്കറ്റുകൾ എന്നിവയും റംസാൻ ഫെയറുകളായി പ്രവർത്തിക്കും അടുത്തമാസം നാലിന് സമാപിക്കും

വൈകിട്ട് മൂന്നിന് പാക്കി സ്ഥാൻ ബംഗ്ലാദേശിനേയും ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീ നേയും നേരിടും

വനിതകളുടെ പത്ത് മീറ്റർ എയർ റൈഫിൾസ് മത്സരത്തോടെയാണ് ചാമ്പ്യൻഷിപ്പിന് തുടക്ക മാകുന്നത്

അക്കരെ കൊട്ടിയൂരി ലെത്തിച്ച ഇളനീർ കാവുകൾ രാവിലെ മുതൽ കാര്യത്ത് കൈക്കോളന്മാർ ചെത്തിയൊരുക്കുകയാണ് അർദ്ധരാത്രി യോടെയാണ് ഇളനീരഭിഷേകം രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്

വ്യാജരേഖയുണ്ടാക്കാൻ വൈദികൻ ശ്രമിച്ചിട്ടില്ലെന്നും വ്യാജരേഖ ചമച്ചതായി ആരോപിക്കപ്പെട്ട യുവാവിനെ സംര ക്ഷിക്കാനുള്ള നടപടികൾ അതിരൂപതയുടെ ഭാഗത്തു നിന്നു ണ്ടായിട്ടില്ലെന്നും സർക്കുലറിൽ പറയുന്നു

ആദ്യ അലോ ട്ട്മെന്റിൽ പ്രവേശനം നേടുന്നതിന് നാളെ കൂടി അവ സരമുണ്ട് കോഴിക്കോട്ട് നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്ക ണ്ടറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷ എഴു തിയ ് ആരോ പണ വിധേയരായ അധ്യാപകരുടെ ജാമ്യാ പേക്ഷ കോഴിക്കോട് പ്രിൻസിപ്പൽ കോടതി നാളെ പരിഗണിക്കും കുറ്റക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടു ത്തെങ്കിലും ആരേയും പിടികൂടാനായിട്ടില്ല

കോഴിക്കോട് കടപ്പുറത്ത് മാലിന്യം നീക്കാൻ കോർപ്പറേ ഷൻ മെഗാ ശുചീകരണം നടത്തി ബേപ്പൂരിനും എലത്തൂരിനു മിടയിൽ രാവിലെ പത്ത് വരെ എട്ട് സെക്ടറുകളായി തിരി ച്ചായിരുന്നു കടലോര ശുചീകരണം വിവിധ സംഘടനക ളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്

അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ നേതൃത്വത്തിൽ ആറ് ലക്ഷം രൂപ ചെലവഴിച്ച് നാല് സെന്റ് സ്ഥലത്താണ് കൃഷി ചെയ്തത്

മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിനെ തുടർന്നാണ് റെയിൽവെയുടെ നടപടി